നീക്കുമെന്ന് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജുകളിൽ വൃക്കമാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയാ സംവിധാനം ഒരുക്കും

കൂടുതൽ ഡാമുകൾ തുറക്കാൻ സ്ാധ്യത രാജ്യസഭ തെരഞ്ഞെടുപ്പിലേക്കുള്ള ന് സ്ഥാനാർത്ഥികൾ ന്ാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നത് മൂന്ന് പേർ

ഹൈടെക് തന്തങ്ങളുമായി കെ എസ്

ടി സി പ്രത്യേക സോഷ്യൽ മീഡിയ സെൽ പ്രവർത്തന സജ്ജമാകുന്നു

ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ കുറഞ്ഞ ചെലവിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വിവിധ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ച് വരികയാണെന്ന് ആരോഗ്യമന്ത്രി കെ

ശൈലജ പറഞ്ഞു

എച്ച്

ചികിത്സയ്ക്കായി പ്രമേഹ ജില്ലാ ആശുപത്രികളിൽ ഡയബറ്റിക് ഫുഡ് ക്സിനിക്കുകൾ ആരംഭിക്കുമെന്നും എയർ ആംബുലൻസ് തുടങ്ങുന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു

പ്രവർത്തിക്കണമെന്ന് കമ്പനി മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടതായി വ്യവസായമന്ത്രി എ

മൊയ്തീൻ പ്രതിപക്ഷത്തെ അറിയിച്ചു

പി സജീന്ദ്രനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് കമ്പനിയിൽ സി ഐ

ഇതേ തുട്ടർന്നാണ് കമ്പനി പൂട്ടാൻ ഇടയായതെന്നും ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും സജീന്ദ്രൻ ആവശ്യപ്പെട്ടു നിയമസഭാ നടപടികൾ സുഗമമായി പുരോഗമിക്കുകയാണ്

അന്യഭാഷാ ചിത്രങ്ങൾക്ക് സംസ്ഥാനത്ത് വിനോദനികുതി ഏർപ്പെടുത്തണമെന്ന കാര്യം പരിഗണിക്കണമെന്ന ധനമന്ത്രി തോമസ് ഐസകും സാംസ്ക്കാരിക മന്ത്രി എ

ഗണേഷ് കുമാർ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രിമാർ

ടി ക്ക് പുറമെയാണ് വിനോദനികുതി ഏർപ്പെടുത്തുന്നത്

ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ഷട്ടറുകൾ തുറ ക്കാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് മലങ്കര ഡാമിന്റെ ഷട്ടർ തു റന്നതിനാൽ തൊടുപുഴയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദേശം നൽകി നെയ്യാർ ഡാമിൽ പരമാവധി ശേഷിയിലേക്ക് ജലനിരപ്പ് അടൂക്കുകയാണ്

മൽസ്യതൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ സ്ഥിതിഗതികളുമായി ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

ഡി

മൂന്ന് ഒഴിവാണ് കേരളത്തിൽ നിന്നുള്ളത്

കെ ശൈലജ സംസ്ഥാനത്ത് നിപ്പ നിയന്ത്രണവിധേയമാക്യിന്നാണ് ആരോഗ്യവകുപ്പി ന്റെ വിലയിരുത്തലെന്ന് ആരോഗ്യമന്ത്രി ക്കെ

പത്തു ദിവസമായി പുതിയ കേസൂകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സ്ഥിതി സാധാരണനിലയിലൂായ് ്സാഹചര്യത്തിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെയൂം തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെയും വിദ്യാലയങ്ങൾ നാളെ തുറക്കും

ഇതിനായി പ്രത്യേക സോഷ്യൽ മീഡിയ സെല്ലിന് കെഎസ്ആർടിസി രൂപം നൽകി വിശദവിവരങ്ങളുമായി കെഎസ്ആർടിസി സിഎംഡി ടോമിൻ ജെ

സി സി രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് ഉച്ചക്ക് ശേഷം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ യോഗം ചേരും

സി സി

പന്തണ്ടിന് കോൺഗ്രസിന് അനുവദിച്ച രാജ്യസഭാസീറ്റ് കേരള കോൺഗ്രസിന് നൽകിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃയോഗങ്ങൾ ചേരുന്നത് ആന്ധ്രയിലേക്കു പോകുന്നതിനാൽ കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടു ക്കില്ലെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി ഇന്നലെ അറിയിച്ചിരുന്നു

പരമൻ തൃശ്ൂരിൽ അന്തരിച്ചു

സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം എഐടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്

ലോകകപ്പ് ഫുട്ബോളിനോട നുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ സ്പോർട്സ് സിനിമകളുടെ പ്രദർശനം ഇന്നാരംഭിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ജില്ലയിലെ കായിക ക്ലീനിക്കുകളും ഫുട്ബോൾ പ്രേമികളും ലോകകപ്പിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്

ഫുട്ബോൾ ആരാധകർ പ്രിയപ്പെട്ട ടീമുകളുടെ ജഴ്സിയണിഞ്ഞ് തീരദേശത്ത് ഇരുചക്രവാഹനറാലി നടത്തി

കൂടെയുണ്ടായിരുന്ന കട്ടേക്കാനം വരിക്കുത്ത്റപ്പേൽ അഖിൽ വി